ആവശ്യപ്പെട്ട് സമർപ്പിച്ച എല്ലാ ഹർജികളും സുപ്രീംകോടതി തള്ളി

പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഉച്ചവരെ നിർത്തിവച്ചു

ബംഗാൾ ഉൾക്കടലിന്റെ തെക്ക് കിഴക്കൻ ഭാഗത്ത് രൂപപ്പെട്ട ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറാൻ സാധൃത

റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേന്ദ്ര ബോർഡ് ഇന്ന് യോഗം ചേരും

ലോകകപ്പ് ഹോക്കി സെമി ഫൈനൽ മത്സരങ്ങൾ നാളെ നടക്കും നെതർലാൻസ് ആസ്ട്രേലിയേയും ബെൽജിയം ഇംഗ്ലണ്ടിനേയും നേരിടും

കരാറിന്റെ നടപടിക്രമങ്ങൾ തീരുമാനം എന്നിവയിൽ സംശയിക്കത്തക്കതായി ഒന്നുമില്ലെന്ന്ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ മൂന്നംഗ ബഞ്ച് വ്യക്തമാക്കി

റഫാൽ വിമാനത്തിന്റെ ഗുണനിലവാരത്തിലും ഇടപാടിലും കരാറിലും സംശയമില്ലെന്നും വിമാനത്തിന്റെ വിലയിൽ വിശദമായ പരിശോധന നടത്തേണ്ട സാഹചര്യമുണ്ടെന്ന് കരുതുന്നില്ലെന്നും കോടതി വ്യക്ത്മാക്കി അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച എല്ലാ ഹർജികളും കോടതി തള്ളി

റഫാൽ ഇടപാടിൽ അഴിമതി ക്കട്ന്നു എന്നാരോപിച്ച് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് അഭിഭാഷകരായ പ്രശാന്ത് ഭൂഷൺ എം എൽ ശർമ്മ മറ്റ് രാഷ്ട്രീയ നേതാക്കൾ എന്നിവരാണ് കോടതിയെ സമീപിച്ചത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള കരാർ വൃക്തവും സുതാര്യവുമാണെന്ന് സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു രാഷ്ട്രീയ കോൺഗ്രസ്സ് ലാഭത്തിനുവേണ്ടി വിഷയത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്നും പാർലമെന്റിന് പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുപ്പ് ൂശീ രാജ്നാഥ് സിംഗ് പറഞ്ഞു

ഭോപ്പാലിൽ ഇന്നലെ നടന്ന യോഗത്തിൽ ക്രോൺഗ്രസ് നേതാവ് എ

ജ്യോതിരാദിത്യ സിന്ധ്യ നൽകിയ പിന്തുണയ്ക്ക് ശ്രീ കമൽനാഥ് നന്ദി അറിയിച്ചു പാർട്ടി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം പാലിക്കുമെന്നും ഇതൊരു പുതിയ തുടക്കമായിരിക്കുമെന്നും ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെ ശ്രീ കമൽനാഥ് പറഞ്ഞു

ഗവർണർ ആനന്ദിബെൻ പട്ടേലിന്ന സന്ദർശിച്ച് സത്യപ്രതിജ്ഞ സംബന്ധിച്ചും ഗവൺമെന്റ് രൂപീകരണം സംബന്ധിച്ചും ചർച്ച നടത്തുമെന്നും ശ്രീ കമൽനാഥ് അറിയിച്ചു

ന്യൂഡൽഹിയിൽ കോൺഗ്രസ് അദ്ധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ തിരക്കിട്ട ചർച്ചയാണ് ഇന്നലെ നടന്നത് രാജസ്ഥാൻ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനായി ശ്രീ

ഇത് സംബന്ധിച്ച് കോൺഗ്രസ് അദ്ധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇന്ന് തീരുമാനമെടുക്കുമെന്ന് സൂചന

എന്നാൽ സുപ്രീംകോടതി വിധി കോൺഗ്രസ്സ് ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്നും കോൺഗ്രസ്സ് അധ്യക്ഷൻ രാഹുൽഗാന്ധി മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ട് ഭരണപക്ഷ അംഗങ്ങളും പ്രതിഷേധിച്ചു

പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ ഉച്ചവരെ നിർത്തിവച്ചതായി സ്പീക്കർ സുമിത്രാ മഹാജൻ അറിയിച്ചു രാജ്യസഭയിൽ സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ്സിനെതിരേയും രാഹുൽഗാന്ധിക്കെതിരേയും ഭരണപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കി ചോദ്യോത്തരവേള ഒഴിവാക്കി റഫാൽ ഇടപാട് സംബന്ധിച്ച് ചർച്ച നടത്തണമെന്ന് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ആവശ്യപ്പെട്ടു

തിങ്കളാഴ്ച ഉച്ചയ്ക്കുശേഷം ആന്ധ്രാപ്രദേശ് തീരത്ത് ഓങ്കോളിനും കാക്കിനടയ്ക്കും ഇടയിൽ ചുഴലിക്കാറ്റ് വീശും നാളെ വൈകിട്ടോടെ ആന്ധ്രാപ്രദേശ് വടക്കൻ തമിഴ്നാട് തീരപ്രദേശങ്ങളിൽ അതിശക്തമായ മഴ ഉണ്ടാകും മഴ അടുത്ത രണ്ടു ദിവസങ്ങളിലും തുടരും

ബംഗാൾ ഉൾക്കടലിന്റെ തെക്ക് കിഴക്കൻ തെക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ മത്സ്യബന്ധനത്തിനായി ഇന്ന് പോകരുതെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി

മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവുവിന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ട്ത് അധികാരമേറ്റിരുന്നു

വിവിധ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു

മ്യാൻമറിന്റെ പുനർ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇന്ത്യ എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് രാഷ്ട്രപതി ഉറപ്പു നൽകി

വളർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ശക്തിയായ ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്താനും അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനും മ്യാൻമർ ബിസിനസ് സമൂഹത്തോട് രാഷ്ട്രപതി ആഹാനം ചെയ്തു

മ്യാൻമർ ജുഡിഷ്യൽ ഓഫീസർമാർക്ക് ഇന്ത്യയിൽ പരിശീലനം നൽകുന്നതിനാണ് ഒരു കരാർ ശാസ്ത്ര സാങ്കേതിക മേഖലയിലാണ് രണ്ടാമത്തെ കരാർ

കെഎസ്ആർടിസി ബസുകൾ സർവീസ് നിർത്തി വച്ചിരിക്കുകയാണ്

എന്നാൽ കൊച്ചി മെട്രോ റെയിൽ സർവീസിനെ ഹർത്താൽ ബാധിച്ചില്ല പാലക്കാട്ട് കെഎസ്ആർടിസി ഡിപ്പോയ്ക്കു മുന്നിൽ നിർത്തിയിട്ടിരുന്ന മൂന്നു ബസുകളുടെ ചില്ലുകൾ ഹർത്താൽ അനുകൂലികൾ തകർത്തു ഇടുക്കിയിലെ കുമളി വണ്ടിപ്പെരിയാർ പഞ്ചായത്തുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്

സൌദി അറേബൃയിലെ ഹജ്ജ് ഉംറ ചുമതലയുള്ള മന്ത്രി ഡോക്ടർ മുഹമ്മദ് സലേഹ് ബിൻ തഹേർ ബെന്റനോട് കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വിയാണ് ഇക്കാര്യം അഭ്യർത്ഥിച്ചത്